ഇന്ന് തുടക്കം

പാർലമെന്റ് സ്പീക്കർമാരുടെ ലോകസമ്മേളന വേദിയിലാണ് ഇന്ത്യ ആവശ്യമുയർത്തിയത്

നാൽപ്പതിനായിരുത്തോളം ഭീകരർ തങ്ങളുടെ രാജ്യത്തുണ്ടെന്ന് പാകിസ്ക്കാൻ പ്രധാനമന്ത്രിതന്നെ സമ്മതിച്ചിട്ടുണ്ടെന്ന് ഇന്ത്യ ചൂണ്ടിക്കുട്ടി

ന്യൂസ് ഡെസ്ക് ആകാശവാണി

നിലവിൽ ഏഴ് ലക്ഷത്തോളം പേർ ചികിത്സയിലാണ് ഇതുവരെ ഇരുപത്തി ഒന്നര ലക്ഷത്തിലധികം പേർ രോഗമുക്തി നേടി

പ്പ്രിശോധന ശക് തമാക്കുന്നതോടെ പോസിറ്റീവ് കേസുകൾ നേരത്തേ കണ്ടെത്താനും ചികിത്സ നൽകാനും സാധിക്കും

മരണം എട്ട് ലക്ഷത്തോട് അടുക്കുന്നു

ഇന്ന് പുലർച്ചെയാണ് പൃദ്ധൂതിയുടെ ആദ്യ യൂണിറ്റിൽ തീപിടുത്തമുണ്ടായത്

പവർ ഹൌസിനുള്ളിൽ രണ്ട് പേർ അക്പ്പെട്ടിട്ടുണ്ട്

സംസ്ഥാനത്ത് തുടർച്ചയായ മഴയെത്തുടർന്ന് ജലസംഭരണിയിലേക്ക് നല്ല നീരൊഴുക്കുള്ളതിനാൽ പൂർണ സമയ വൈദ്യുതി ഉൽപാദനത്തിനിടെയാണ് ദുരന്തം

ജെ പി സിറ്റിങ്ങ് എം

ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്നലെ രാത്രി ലഖ്നൌവിലായിരുന്നു അന്തൃം

സമർപ്പിത പൊതുജീവിതം നയിച്ച നേതാവായിരുന്നു ജൻമെ ജയ്സിങ് എന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു

സംസ്ഥാനതല ഉദ്ഘാടനം ഓൺലൈനായി വൈകുന്നേരം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും

രവീന്ദ്രനാഥിന്റെ അധ്യക്ഷത്യിൽ ചേർന്ന ഗവേണിംഗ് കൌൺസിൽ അംഗീകാരം നൂൽക്കി

അടുത്തമാസം ഒന്ന് മുതൽ വിദ്യാലയങ്ങളിൽ എത്തണമെന്ന് അധ്യാപകരോട് നിർദ്ദേശിച്ചിട്ടുണ്ട് കേന്ദ്രത്തിന്റെ അംഗീകാരത്തിന് വിധേയമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കാൻ അസം സർക്കാർ ശ്രമിക്കുന്നതായി അധികൃതർ അറിയിച്ചു

ദേശീയ വിദ്യാഭ്യാസ നയം മഹാരാഷ്ട്രയിൽ നടപ്പാക്കുന്നതിന് സംസ്ഥാനത്തെ നിലവിലുള്ള നിയമത്തിൽ നിരവധി മാറ്റങ്ങൾ വരുത്തേണ്ടതായി വരുള്ളമന്ന് മുഖ്യമന്ത്രി ഉദ്ദവ് താക്കറെ പറഞ്ഞു

സ്വർണവിലയിൽ മാറ്റമില്ല

പളനിസ്വാമി തിരുച്ചിറപ്പള്ളിക്ക് സമീപം നാമക്കലിൽ എത്തി

വ്യവസായ വാണിജ്യ സംഘടനാ പ്രതിനിധികളുമായി അദ്ദേഹം ഇന്ന് ചർച്ച നടത്തും

മഴ് തുടരുന്നതിനാൽ റോഡ് തുറക്കാനുള്ള ശ്രമങ്ങൾ തടസ്സപ്പെട്ടു